രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിവിധവശങ്ങൾ പരിശോധിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് ക്ട്മീഷൻ ഒമ്പത് സമിതികൾക്ക് രുപം നൽകി

നിപ രോഗബാധ സംശയിക്കൂന്ന സാഹചരൃത്തിൽ സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് കനത്ത ജാഗ്രതയിൽ

ലോകകപ്പ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ പാകിസ്ഥാന് വിജയം ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മൽസരം നാളെ

കരസേനയും വിവിധ ഗവൺമെന്റ് സിവിൽ ഏജൻസികളുമായി സഹകരിച്ച് വടക്ക് കിഴക്കൻ മേഖലയിലാണ് തിരച്ചിൽ നടത്തുന്നത്

മൂാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ്സിങ് വ്യോമസേനയുടെ വൈസ് ചീഫ്റ്റ് എയർമാർഷൽ രാകേഷ്സിങ് ഭദോരിയുമായി ഇതു സംബന്ധിച്ച് ചർച്ച നടത്തി പ്രായ്ത്രക്കാർ സുരക്ഷിതരായിരിക്കാൻ പ്രാർത്ഥിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി ട്വിറ്റ്റിൽ കുറിച്ചു

മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും കമ്മീഷണർ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടതാണ് സമിതി വോട്ടർ പട്ടിക പോളിംഗ് കേന്ദ്രങ്ങൾ മാതൃകാ പെരുമാറ്റചട്ടം തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ചെലവ് നിയന്ത്രണം തുടങ്ങിയവ സമിതികൾ പരിശോധിക്കും

എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നിരുന്നു

ജനങ്ങളുടെ പ്രതികരണം ലഭിക്കുന്നതിനായി ലഭ്യമാക്കിയ കരട് നിർദ്ദേശത്തിൽ ചില പിഴവുകൾ കടന്നുകൂടിയതുകൊണ്ടാണ് തിരുത്തൽ വരുത്തിയതെന്ന് സമിതി അറിയിച്ചു പരിഷ്കരിച്ച കരട് നയം വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട് അടിസ്ഥാനഘട്ടം മുതൽ മൂന്ന് ഭാഷകൾ പഠിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന ത്രിഭാഷ പാഠ്യപദ്ധതിയാണ് സമിതി നിർദ്ദേശിക്കുന്നത് ഏതൊക്കെ ഭാഷ പഠിക്കണമെന്നത് വിദ്യാർത്ഥികൾക്ക് തെരഞ്ഞെടുക്കാം എന്ന പരിഷ്കാരമാണ് ഇപ്പോൾ പ്രധാനമായി വരുത്തിയിരിക്കുന്നത് കരട് നിർദ്ദേശങ്ങൾ ഗവൺമെന്റിന്റെ നയമല്ലെന്നും ശുപാർശകൾ മാത്രമാണെന്നും മാനവവിഭവശേഷി മന്ത്രാലയം സെക്രട്ടറി ആർ

ത്രിഭാഷാ പാഠ്യപദ്ധതിയിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ വിഭാഗി്ങ്ങളുമായി ചർച്ച നടത്തുമെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു

ഡിജിറ്റൽ കാലഘട്ടത്തിൽ കാലോചിതമായ പരിഷ്കാരം നടത്തുന്നതിന് വേണ്ടിയാണ് നിർദേശങ്ങൾ സ്വരൂപിക്കുന്നത്

പൂനെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പരിശോധനാഫലം ലഭിച്ചാൽ മാത്രമേ രോഗം സംബന്ധിച്ച സ്ഥിരീകരണം ഉണ്ടാകൂ റിപ്പോർട്ട് ഇന്ന് ലഭിക്കാനാണ് സാധൃത കൂടുതൽ വിവരങ്ങളുമായി നന്ദകുമാർ

ശൈലജ പ്രിൻസിപ്പൽ സെക്രട്ടറി എറണാകുളം ജില്ലാകളക്ടർ ആരോഗൃവകുപ്പ് ഡയറക്ടർ എന്നിവർ വീഡിയോ കോൺഫറൻസ് വഴി സംസ്ഥാനത്തെ എല്ലാ ജില്ലാ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽമാർക്കും സ്ഥിതഗതികൾ സംബന്ധിച്ച് ആവശ്യമായ നിർദ്ദേശം നൽകി കോഴിക്കോട് നിപ നിയന്ത്രണ പ്രവർത്തനങ്ങളിൽ പരിചയം സിദ്ധിച്ച സംഘത്തിന്റെ സേവനവും കൊച്ചിയിൽ ഉറപ്പാക്കിയിട്ടുണ്ട് കൂടുതൽ കേസുകൾ എത്തുകയാണെങ്കിൽ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കും

യുവാവ് തൊടുപുഴയിൽ നിന്നു് പ്ലരുമ്പോൾ തന്നെ പനിയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിച്ചുവിരിക്കയാണെന്ന് ഇടുക്കി ഡി

ന്യൂസ് ഡസ്ക് ആകാശവാണി

വയനാട് ഒഴികെയുളള ജില്ലകളിലാണ് കാര്യമായ മഴക്കുറവുണ്ടായത്

സംസ്ഥാനത്തെ പച്ചക്കറി ഉൽപ്പാദനത്തിൽ സ്വയംപര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷി വകുപ്പ് രണ്ടു വർഷമായി നടപ്പാക്കുന്ന പദ്ധതി വിജയകരമായ മൂന്നാം വർഷത്തിലേക്ക് കടക്കുകയാണ്

ഈ മാസം തന്നെ സംസ്ഥാനത്തെ എല്ലാ വിദ്യാർത്ഥികൾക്കും സൌജനൃമായി പച്ചക്കറി വിത്ത് പായ്ക്കറ്റ് വിതരണം ചെയ്യും

റമസാൻ പുണ്യ മാസത്തിന്റെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ഈദ് അർ ഫിത്റോടെ സമാപനമാവുകയാണ്

ആദ്യകളിയിൽ വെസ്റ്റിൻഡീസിനോട് ദയനീയമായി തോറ്റ പാകിസ്ഥാൻ ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയത്

ലോകകപ്പിൽ ഇന്ന് അഫ്ഗാനിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും നാളെയാണ് ഇന്ത്യയുടെ ആദ്യ മൽസരം ആദ്യ രണ്ട് കളിയിലും തോറ്റ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളി നാളെ നടക്കുന്ന മറ്റൊരു മൽസരത്തിൽ ബംഗ്ലാദേശ് ന്യൂസിലന്റിനെ നേരിടും

ഡൽഹിയിൽ ഗവൺമെന്റ് ഏജൻസികൾ നടപ്പാക്കുന്ന മഴവെള്ള സംഭരണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമാണെന്ന പരാതി ഉയർന്ന സാഹചര്യത്തിലാണിത് കേന്ദ്ര മനിലീകരണ നിയന്ത്രണ ബോർഡ് ഡൽഹി മലിനീകരണ നിയന്ത്രണ സമിതി കേന്ദ്ര ഭൂഗർഭ ജല ബോർഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടുന്ന സമിതി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം

സുഡാനിൽ പ്രക്ഷോഭകർക്കെതിരായ സൈനിക നടപടിയിൽ മുപ്പതിലേറെപേർ മരിക്കുകയും നൂറോളംപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ബ്രിട്ടനും ജർമ്മനിയുമാണ് ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് പ്രക്ഷോഭകർക്കെതിരെ സൈനൃത്തെ നിയോഗിച്ച നടപടി ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു

മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായ അമിത് ഖാരെ യുടെ നേതൃത്വത്തിലുളള മാധ്യമ പ്രതിനിധി സംഘം ഇന്നലെ രാഷ്ട്രപതിയെ സന്ദർശിച്ചു

രാജസ്ഥാനിലെ മിക്ക നഗരങ്ങളിലും കൂടിയ താപനില ശരാശരിയിൽ നിന്നും നാല് മുതൽ എട്ട് ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ് എന്നാൽ രാജ്യത്തിലെ ചിലയിടങ്ങളിൽ മഴ ലഭിച്ചതോട്ടി ്ളജനങ്ങൾക്ക് ആശ്വാസമായിട്ടുണ്ട്

ബോംബെ ഹൈക്കോടതിയിലാണ് എൻഫോഴ്സ്മെന്റ് ഇക്കാര്യം വൃക്തമാക്കിയത്